രാജ്യത്തെ വികസനം ത്വരിതപ്പെടുത്താൻ രൂപീകരിക്കുന്ന ഡി

ഐ സംരംഭത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം

ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പങ്കാളികളാവും

പത്രികാ സമർപ്പണം നാലാം ദിവസത്തിലേക്ക്

എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു

പൊതുമേഖലാ സ്ഥാപനമായ ഹാൻഡിക്രാഫ്റ്റ്സ് ആന്റ് ഹാൻഡ്ലൂംസ് എക്സ്പോർട്ട് കോർപ്പറേഷൻ അടച്ചുപൂട്ടാനും മന്ത്രിസഭ അംഗീകാരം നൽകി

ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരുപതിനായിരം കോടി രൂപയുടെ പ്രാരംഭ മൂലധനത്തോടെയാണ് പ്രവർത്തനം ആരംഭിക്കുക നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിക്കും രാജ്യത്തെ അടിസ്ഥാന വികസന് പദ്ധതികൾക്കായി ദീർഘകാല ്ന്റിക്ഷേപങ്ങൾ സമാഹരിക്കുകയാണ് ഡി എഫ്

വരും വർഷങ്ങളിൽ മൂന്ന് ലക്ഷം കോട്ടി രൂപ്പ് ഡി

ഐ വഴി സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നൂതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളോട്ട് ്പറഞ്ഞു

വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടി സി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏഴു പതിറ്റാണ്ടിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളവും സൌഹാർദ്ദപരവുമായ നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് ഇരുവരും എടുത്തുപറഞ്ഞു ഭാവി വിവര കൈമാറ്റ സാങ്കേതിക വിദ്യ മൊബൈൽ ടെക്നോളജി ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഡിജിറ്റൽ പങ്കാളിത്തം പ്രധാനമന്ത്രിമാർ പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ തമ്മിൽ ഉന്നതതല ചർച്ച നടത്തും കോവിഡ് വാക്സിൻ വികസനം വേഗത്തിലാക്കുന്നതിലും എല്ലാ രാജ്യങ്ങളിലേക്കും തുല്യമായി ലഭ്യമാക്കുന്നതിനുമുള്ള ആഗോള ശ്രമങ്ങളുടെ പ്രാധാന്യം സംയുക്ത പ്രസ്താവനയിൽ എടുത്തുപറഞ്ഞു

ക്ട്രോവ്കിഡ് വ്യാപനം പിടിച്ചുനിർത്തുന്ന തിനായി വേഗത്തിലുള്ളൂ പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ആവശ്യകത ഇരുനേതാക്കളും ടെലിഫോൺ സംഭാഷണത്തിൽ ചർച്ച ചെയ്തു

കഴിഞ്ഞ വർഷം മാർച്ചിൽ ലോക്സഭാ പാസാക്കിയ ബില്ലാണ് രാജ്യസഭാ ഇന്നലെ അംഗീകരിച്ചത് സ്ത്രീകളുടെ സ്വകാര്യത സംരക്ഷിച്ച് ഗർഭഛിദ്രം നടത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്

സി യുവജന സംഘടനാ നേതാവ് വിനയ് മിശ്രയുടെ സഹോദരൻ വികാസ് മിശ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു കൽക്കരി കച്ചവടത്തിലും ഖനനത്തിലും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സി ബി ഐ യുടെ എഫ് ഐ ആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്

എൻ ്എസ് രാജശേഖരൻ തിരുനല്ലറിൽ നിന്നും എ ജോൺ ്കുമാർ കാമരാജ് നഗറിൽ നിന്നും സ്ഥാനാർത്ഥിയാകും

കമലക്ക്ണ്ണ്ൻ തിരുനല്ലറിൽ നിന്നും എം

നേരത്തേ ബിജെപിയുടെ സ്ഥാനാർഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ കഴക്കൂട്ടം ഒഴിവാക്കിയാണ് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചത്

ആയിരം പേർക്ക് ഒരു ബൂത്ത് എന്ന തരത്തിൽ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കാൻ ഉന്നത തല യോഗത്തിൽ തീരുമാനമായി

വെള്ളിയാഴ്ചയാണ് അവസാന തീയതി ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന നടത്തും തപാൽ വോട്ടിന് ഇന്നുകൂടി അപേക്ഷിക്കാം

കോവിഡ് ബാധിതർക്കും രോഗ നിരീക്ഷണത്തിലുള്ളവർക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തി ലായിരിക്കും തപാൽ ബാലറ്റ് അനുവദിക്കുക

രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്

ലോകമെമ്പാടും ഈ നയം പ്രശംസിക്കപ്പെടുന്നുണ്ടെന്ന് ലോക് സഭയിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ആവശ്യപ്പെട്ടുള്ള ചർച്ചയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു

നിർമ്മിത ബുദ്ധി ആദ്യമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ദേശീയ ഗവേഷ്ടണ ഫൌണ്ടേഷന് അഞ്ച് വർഷത്തിനിടെ അമ്പതിനായിരം കോടി രൂപ്പ് അനുവദിച്ചു

കോവിഡ് പകർച്ചവ്യാ്ധീയുടെ സമയത്ത് സർക്കാർ ഓൺലൈൻ ക്ലാസുകൾ ബോർഡ് പ്പരീക്ഷകൾ ജെഇഇ നീറ്റ് പ്രവേശന പരീക്ഷകൾ എന്നിവ വിജയകരമായി നടത്തി വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളൂബജറ്റ് വിഹിതം കുറച്ചെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ മന്ത്രി നിട്ഷേധിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് എംപി ശശി തരൂർ സ്വാഗതം ചെയ്തു നിലവിലെ രൂപത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം വിവേചനപരമാണ് നിരവധി പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം കുറച്ചതിനാൽ വിദ്യാഭ്യാസം കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയല്ലെന്ന് അദ്ദേഹം ആരോപിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ എൻഡിഎ ഭരണകാലത്ത് ബജറ്റ് വിഹിതം പലമടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ബിജെപി എംപി സഞ്ജയ് ജയ്സ്വാൾ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വിപ്തവമാണ് പുതിയ നയമെന്ന് ബിജെപി എംപി തേജസ്വി സൂര്യ പറഞ്ഞു

അടുത്തിടെ യു

മഹാരാഷ്ട്ര ആരോഗ്യ മന്ത്രി രാജേഷ് ടോപ്പെ ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷ്വർദ്ധനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്

ഇംഗ്ലണ്ടിനായി മാർക്ക് വുഡ് മൂന്ന് വിക്കറ്റ് നേടി